ഡി

മേൽക്കൈ എറണാകുളത്ത് യു ഡി എഫ് വിജയം ഉറപ്പിച്ചു

വട്ടിയൂർക്കാവിലും കോന്നിയിലും എൽ ഡി

വിജയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് മുൻനിര ന് മുന്നണികളുടെ ശക്തിക്രേന്ദങ്ങളിൽ വിള്ളലിന്റെ കാഴ്ച

മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിൽ അനിഷ്ടസംഭവങ്ങൾ ഇല്ല

ഹരിയാനയിലും എൻ ഡി

ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ് സി യെ നേരിടും

ഡി

എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി റ്റി

വിനോദ് വിജയം ഉറപ്പിച്ചു തൊട്ടടുത്ത എൽ

വിനോദ് വിജയിച്ചത്

ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു ശക്തമായ ത്രികോണ മൽസരം നടന്ന വട്ടിയൂർക്കാവിലും കോന്നിയിലും എൽ ഡി

വട്ടിയൂർക്കാവിൽ എൽ ഡി എഫിലെ വി

കോന്നിയിൽ എൽ

എഫ് സ്ഥാനാർത്ഥി ജനീഷ് കുമാറിന് പതിനായിരുത്തിലേറെ വോട്ടുകളുടെ ലീഡാണ് ഉള്ളത്

കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിരുന്ന എൽഡിഎഫ് ഇക്കുറി തിരുവനന്തപുരം മേയറെ രംഗത്തിറക്കിയാണ് മണ്ഡലം പിടിച്ചത്

യു ജനീഷ്കുമാർ വിജയമുറപ്പിച്ചത് യുഡിഎഫിന്റെ പി മോഹൻരാജ് രണ്ടാം സ്ഥാനത്തും എൻഡിഎ സ്ഥാനാർഥി കെ സുരേന്ദ്രൻ മൂന്നാം സന്ഥാനത്തുമാണ് ത്രികോണ മത്സരം പ്രതീക്ഷിച്ച കോന്നിയിൽ എൽഡിഎഫ് അട്ടിമറിവിജയമാണ് നേടിയത്

അതിനുശേഷം യുഡിഎഫിന്റെ ഉറച്ച മണ്ഡലമായിരുന്നു കോന്നി

ഡി

ഡി

ഡി എഫ് സ്ഥാനാർത്ഥി റ്റി

ഡി

വോട്ടെടുപ്പ് ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായെങ്കിലും യു

രാജഗോപാലിന് പരമ്പരാഗത വോട്ടുകൾ ഉറപ്പിക്കാനായി

ശങ്കർ റൈയിലൂടെ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള എൽഡിഎഫിന്റെ ശ്രമം ഫലം കണ്ടില്ല

ശിവസേനാ സ്ഥാനാർത്ഥി ആദിത്യ താക്കറേ വർളിയിൽ വൻ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണ്

സി പി യിലെ സുരേഷ് മാനേയാണ് എതിർസ്ഥാനാർത്ഥി

ബബിത ഫോഗട്ട് ദത്രിയിലും യോഗേശ്വർ ദത്ത് ബറോഡയിലും മുന്നിലാണ്

ടെക് വിദ്യാർത്ഥിനിക്ക് അധിക മാർക്ക് നൽകാൻ വിദ്യാഭ്യാസ്ത മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുവെന്ന ആരോപണം ചർച്ച് ചെയ്യാനാണ് അടിയന്തര യോഗം

ആദ്യ മൽസരത്തിൽ കൊൽക്കത്തയെ കീഴടക്കിയതിന്റെ ആത്മവിശാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിനിറങ്ങുന്നത്